പലയിടത്തും പോലീസും പ്രക്ഷോഭകരും ഏറ്റുമുട്ടി

ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ യുവതികൾ ദർശ്രനം നടത്തിയതിനെ തുടർന്ന് ന് ശബരിമലയിൽ ക്ഷേത്രനട അടച്ച് ശുദ്ധികലശം

ഡിറ്റക്ഷൻ ക്യാമ്പയിൻ വൻ വിജയമെന്ന് ആരോഗ്യവകുപ്പ് മുൻ എം എൽഎ

കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറി

ജെ

പ്രതിഷേധക്കാരെന്ന പേരിൽ ഒരു വിഭാഗം സംസ്ഥാനമൊട്ടാകെ കടകൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തു കൊല്ലം ഭരണിക്കാവ് ശാസ്താനടയിലും ശാസ്താംകോട്ട കാരാളിമുക്കിലും കെഎസ്ആർടിസി ബസ്സുകൾക്ക് നേരെ കല്ലെറിഞ്ഞു കരുനാഗപ്പള്ളിയിൽ വാഹനങ്ങൾക്കും കടകൾക്കും നേരെ ആക്രമണമുണ്ടായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നേരെ ഗുരുവായൂരിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി കണ്ണൂരിൽ മന്ത്രി കെ കെ ശൈലജയ്ക്കു നേരെയും യുവമോർച്ചാ പ്രവർത്തകർ പ്രതിഷേധിച്ചു

അതേസമയം ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വൃാപാരി വൃവസായി ഏകോപന സമിതിയും കൊച്ചി ട്രേഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർഡിനേഷൻ കമ്മിറ്റിയും അറിയിച്ചു

ഡി എഫ് നാളെ സംസ്ഥാന വൃാപകമായി കരിദിനം ആചരിക്കുമെന്ന് യു ഡി എഫ്

എന്നാൽ ഇവർ പതിനെട്ടാം പടിയിലൂടെയല്ല അകത്തേക്ക് പ്രവേശിച്ചതെന്നാണ് വിവരം

ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവതി പ്രവേശനം സ്ഥിരീകരിച്ചു

സന്നിധാനത്തെ പ്രി പിവരങ്ങളുമായി പത്തനംതിട്ട ആകാശവാണി പ്രതിനിധി ബിജി വർഗീസ്

നാളെ നടത്താനിരുന്ന ഹയർ സെക്കന്ററി വൊക്കേഷണൽ ഹയർ സെക്കന്ററി അർദ്ധവാർഷിക പരീക്ഷകൾ മറ്റന്നാളത്തേക്ക് മാറ്റി വനിതാ കമ്മീഷൻ നാളെ ഇടുക്കി പൈനാവ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്താനിരുന്ന അദാലത്തും മാറ്റിവച്ചു

സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യുവതികൾ ദർശനത്തിന് എത്തിയാൽ അതിനെ എതിർക്കാൻ ഗവൺമെന്റിന് കഴിയില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു യുവതി പ്രവേശനത്തിന്റെ പേരിൽ ശബരിമല നട അടച്ചത് ജുഡീഷ്യറിയോടുള്ള വെല്ലുവിളിയെന്ന് സി

ശബരിമല വിഷയത്തിൽ നിയമപോരാട്ടം നടത്തുമെന്ന് എൻ

സെക്രട്ടറി സുകുമാരൻ നായർ

നട അടച്ച തന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും ജി

നവേത്ഥാനമൂലൃം സംരക്ഷിക്കാനെന്ന പേരിൽ വനിതാമതിൽ സംഘടിപ്പിച്ച സംസ്ഥാന ഗവൺമെന്റ് ശബരിമല നട അടപ്പിക്കുകയാണ് ചെയ്തതെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ കൊച്ചിയിൽ പറഞ്ഞു

രണ്ടു കോടിയിലേറെ ആളുകളെ ക്യാമ്പയിനിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

പൊതുജനങ്ങളിൽ കാര്യമായ പ്രതികരണം സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിച്ചതായി ആരോഗൃ മന്ത്രി കെ

കുഷ്ഠരോഗ നിർമ്മാർജന രംഗത്ത് നാഴികക്കല്ലായി മാറിയ ഈ ക്യാമ്പയിൻ രണ്ട് തവണയെങ്കിലും നടത്തുന്നതിലൂടെ സംസ്ഥാനത്തെ പരമാവധി കുഷ്ഠ രോഗികളെ ചികിത്സയ്ക്ക് വിധേയമാക്കാൻ സാധിക്കുമെന്ന് ആരോഗൃമന്ത്രി അറിയിച്ചു ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ളത് പാലക്കാട് ജില്ലയിലാണ്

രാവിലെ മൃതദേഹം എറണാകുളം ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ സിപിഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ വടുതലയിലെ വീട്ടിലെത്തി സൈമൺ ബ്രിട്ടോയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു

സംസ്കാരം മറ്റന്നാൾ കോഴിക്കോട് മലാപ്പറമ്പ് ക്രൈസ്റ്റ് ഹാൾ സെമിത്തേരിയിൽ നടക്കും

കുറച്ച് ദിവസങ്ങളായി ഊട്ടിയിലെ താപനില അഞ്ച് ഡിഗ്രിയോട് അടുക്കുകയാണ് എന്നാൽ തണുത്ത കാലാവസ്ഥ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ട്രിച്ചിയിൽ നിന്ന് ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

സ്ത്രീകൾ ഒരിക്കലും അശുദ്ധരല്ലെന്നും മുമ്പും യുവതികൾ ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞു

പൈനാപ്പിളിന്റെ കൃഷിയും വിപണനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പൈസസ് ബോർഡും കോഫിബോർഡൂർ പ്പിൾബോർഡ് ആരംഭിക്കണ്മെന്നാണ് ബില്ലിലൂടെആവശ്യ പ്പെട്ടത്

ഇന്നലെ മുതലാണ് ്കുളളാർ ഡാമിൽ നിന്ന് പ്പയിലേയ്ക്ക് വെള്ളം തുറന്ന് വിട്ടത്